ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ ിന്റെ വോട്ടെടുപ്പ് നാളെ

നിർഭയ കേസിലെ ഡൽഹ്നി ഹൈക്കോടതി വിധിക്കെതിരെ ന് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതിയിൽ വാദം

ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് അവതരിപ്പിക്കും

ബോഡോ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്

മന്ത്രിമാരടങ്ങിയ സംഘം സ്ഥലത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്

ആഘോഷങ്ങളുടെ ഭാഗമായി ബോഡോലാന്റ് പ്രദേശത്തെ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ ന്നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയ് ്യിരുന്നു നരേന്ദ്രമോദി പ്രതിഷേധ സമരങ്ങൾ അക്രമാസക്തമാകരുത് ദ്ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സെൻസസ് എന്നിവ സാധാരണ ഭരണപൂരമായു നടപടികൾ മാത്രമാണ്

പാവങ്ങൾക്ക് നേട്ടം ലഭിക്കേണ്ടത് രാഷ്ട്രീയ നേട്ടത്തിന് പ്രതീപക്ഷം ദുരുപയോഗം ചെയ്യുകയാണ്

വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ഡൽഹി മെട്രോ സർവ്വീസ് നാളെ രാവിലെ നാലു മണിക്ക് ആരംഭിക്കും എഴുപത് അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്നലെയാണ് അവസാനിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാല് പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിയതിനെതിരെയാണ് കേന്ദ്രം അപ്പീൽ നൽകിയത് പ്രതികൾ സമർപ്പിച്ച ദയാഹർജികൾ തള്ളിക്കളഞ്ഞിട്ടും വിധി നടപ്പിലാക്കാൻ ജയിൽ അധികൃതർക്ക് സാധിക്കുന്നില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ

പൊതു മേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ടോ എന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഇന്നലെ നടന്ന ചർച്ചയിൽ ആക്ഷേപമുന്നയിച്ചു സമ്പദ്വ്യവസ്ഥ ശക്തമായിരിക്കുന്നത് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബലത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർഷകർ വിദ്യാർത്ഥികൾ വനിതകൾ ഗിരിവർഗ വിഭാഗക്കാർ തുടങ്ങി എല്ലാ വിഭാഗക്കാരെയും ബജറ്റ് പരിഗണിച്ചിട്ടുണ്ടെന്ന് ബി

പി നേതാവ് ജയന്ത് സിൻഹ പറഞ്ഞു

സന്ദർശനത്തിനിടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശ്രീ

വിദേശകാര്യ മന്ത്രി ഡോ

നാളെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകും

ഭീകര പ്രവർത്തനത്തിന് പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലാണ് വിധി പറയുന്നത്

ബജറ്റ് അനുബന്ധ രേഖകളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമ്പത്തികസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ടും ഇന്ന് ധനമന്ത്രി സഭയിൽ സമർപ്പിക്കുക്സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്ക്ടിള്ളട്ടുത്തുള്ള പുതിയ വരുമാന സമാഹരണ പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാക്ടും

കേരളത്തിൽ പുതുതായി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആരോഗൃവകുപ്പ് നിതാന്ത ജാഗ്രത തുടരുകയാണ്

സംസ്ഥാന ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തും ജില്ലാ ആസ്ഥാനങ്ങളിലും കൊറോണ കൺട്രോൾ റൂം സജ്ജീകരിച്ചു ആലപ്പുഴ എൻ ഐ വി യുണിറ്റിലും സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ കൊറോണ വൈറസിനെ സംബന്ധിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകിയ ചൈനീസ് ഡോക്ടർ കൊറോണ ബാധിച്ച് മരിച്ചു

മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോ

ലീലാവതിയും പ്രൊഫസർ എം

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യം

കേരളത്തിലെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയുമായി കുവൈറ്റിലെ സായുധസേന കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഇത് ആദ്യമായാണ് കുവൈറ്റ് സായുധസേന മെഡിക്കൽ വിഭാഗ തസ്തികകളിലേയ്ക്ക് റിക്രൂട്ട്മെന്റിനാണ് കരാറായത്

ജി പി ദിൽബാഗ് സിംഗ് പോലീസിന് നിർദ്ദേശം നൽകി അവന്തിപ്പോറയിൽ ജമ്മു കാശ്മീരിലെ നിലവിലെ സ്ഥിതി വിലയിരുത്താൻ ചേർന്ന ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കശ്മീർ താഴ്വരയിൽ അടുത്തിടെ നടന്ന നടപടികളിൽ നിരവധി തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഭാവിയിലും ഇത്തരം നടപടികൾ തുടരാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു

അന്താരാഷ്ട്ര തലത്തിൽ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലേയ്ക്ക് ആകർഷിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായാണ് നടപടി വിവിധ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് യു

ഇ ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി യൂനിസ് ഹാജി അൽ ഖൂറി അറിയിച്ചതായി എമറേറ്റ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു

ഗവർണർ ജഗ്ദീപ് ധങ്കാറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുക

പരമ്പരയിൽ ഒരു ജയവും ഒരു തോൽവിയുമായി മൂന്ന് ടീമുകളും തുല്യ പോയിന്റ് പങ്കിടുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് നാല് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു